കെ ശൈലജ

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്

അവരുടെ രണ്ടാമത്തെ ബജറ്റാണിത് വ്യാപാര വാണിജൃ മേഖലകൾക്ക് പുറമെ ശമ്പള വരുമാനക്കാരും ബജറ്റ് പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് സാമ്പ ത്തിക വളർച്ചക്കും യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നതിനും ബജറ്റിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യയെ അഞ്ച് ട്രില്യൻ ഡോളർ സമ്പദ് മേഖലയാക്കുമെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് പ്രതിഫ ലിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ സാഹചര്യത്തിലും ഇന്ത്യൻ സമ്പദ്രംഗം സന്തുലിതമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്

കെ ശൈലജ അറിയിച്ചു സംസ്ഥാനത്ത് കൊറോണ വൈറസ് ബാധ നിരീക്ഷണം ശക്തമാക്കിയതായും ആശങ്കാജനകമായി ഒന്നു മില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മെഡിക്കൽ ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ സംസാ രിക്കുകയായിരുന്നു മന്ത്രി

ശേഷിക്കുന്ന സാമ്പിളുകളുടെ ഫലം വൈകാതെ ലഭിച്ചേക്കു മെന്ന് മന്ത്രി പറഞ്ഞു അതിനിടെ കൊറോണ് ബാധ സംബന്ധിച്ച വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച മൂന്നുപേരെ തിരിച്ചറിഞ്ഞതായും ഇവർക്കെതിരെ കേസെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു

ദർവ്വെടെ ദ കൊറോണ സാഹചരൃത്തിൽ ചൈനയിലെ വുഹാൻ നഗരത്തിൽ നിന്ന് ഒഴിപ്പിക്കുന്ന ഇന്ത്യക്കാരുമായി എയർഇന്ത്യയുടെ പ്രത്യേക വിമാനം അല്പ സമയത്തിനകം ഡൽഹിയിലെത്തും

നാല്പതോളം മലയാളി വിദ്യാർത്ഥികൾ ഈ സംഘത്തിൽ ഉൾപ്പെടുന്നതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ അറിയിച്ചു കൊറോണ വൈറസ്ബാധ ഇല്ലെന്ന് ചൈനീസ് അധികൃതർ പരിശോധിച്ച് ഉറപ്പാക്കിയ യാത്രക്കാരുമായി ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്നരയോടെയാണ് വുഹാനിൽ നിന്ന് വിമാനം പുറപ്പെട്ടത് ഡൽഹി വിമാനത്താവളത്തിൽ കരുതൽ നടപടികളുടെ ഭാഗമായി യാത്രക്കാരെ വീണ്ടും പരിശോധിക്കും അതിനുശേഷം ഇവരെ ഹരിയാനയിലെ മനേസറി നടുത്ത് രണ്ടാഴ്ച നിരീക്ഷണത്തിൽ വെച്ച ശേഷമായിരിക്കും നാടുകളിലേക്ക് അയയ്ക്കുന്നത് ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ ഇന്ന് മറ്റൊരു വിമാനം കൂടി വുഹാനിലേക്ക് അയയ്ക്കുമെന്ന് എയർഇന്ത്യ കേന്ദ്രങ്ങൾ അറിയിച്ചു

കൊറോണ പ്രതിരോധത്തിന് വരുംദിവസങ്ങളിൽ രാജൃത്ത് ഇത്തരം സാധനങ്ങൾ കൂടുതലായി വേണ്ടിവരുമെന്ന നിഗമനത്തെ തുടർന്നാണ് നിരോ നനം

കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ജില്ലാ ആശുപത്രി തലശേരി ജനറൽ ആശു പത്രി എന്നിവിടങ്ങളിലാണ് വാർഡുകൾ തയ്യാറാക്കിയത് കോട്ടയം മെഡി ക്കൽ കോളജിലും ജനറൽ ആശുപത്രിയിലും ഐസൊലേഷൻ വാർഡു കൾ തുറന്നിട്ടുണ്ട്

ഇവരിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല

ദർവ്വ്റെ പ മലബാർ മേഖലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യം ചർച്ച ചെയ്യാൻ കല്പ്പ റ്റയിൽ രാവിലെ ഉന്നതതല യോഗം ചേരും കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുന്ന യോഗത്തിൽ ചീഫ് സെക്രട്ടറി ടോം ജോസും ഡി ജി പി ലോക്നാഥ് ബെഹ്റയും മലബാർ മേഖലയിലെ കലക്ടർമാരും ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കും അടുത്തിടെ വയനാട് അടക്കം ജില്ലക ളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് യോഗം രദ്ദേഷ്ടങ പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർ ഇന്നലെ ആരംഭിച്ച പണിമുടക്ക് ഇന്നും തുടരും തുടർച്ചയായ രണ്ടാംദിവസവും ബാങ്ക് ഇടപാടുകൾ തടസ്സ പ്പെട്ടേക്കുമെന്നാണ് സൂചന

പാലം പണി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കുന്നതിന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർദ്ദേശം നൽകി പള്ളിമൺ നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്

കോട്ടയം തിരുവാതുക്കൽ ഉള്ളാട്ടിൻപടി തമ്പി ഭാര്യ വത്സല മകൻ ബിനോയിയുടെ ഭാര്യ പ്രഭ അവരുടെ അമ്മ ഉഷ പ്രഭ യുടെ മകൻ അമ്പാടി എന്നിവരാണ് മരിച്ചത്

സി റോഡിൽ കാളികാവ് പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം പാലക്കാട്ട് പോയി മടങ്ങു മ്പോൾ രാത്രി പന്ത്രണ്ടരയോടെയായിരുന്നു സംഭവം

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സിയുമായി ഏറ്റുമുട്ടും വൈകീട്ട് ഏഴരയ്ക്കാണ് മത്സ രം

രദേഷ്ടെടു കൊല്ലത്ത് പത്താമത് ദേശീയ സീനിയർ വനിതാ ഹോക്കി ബി ഡിവി ഷൻ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ന് സശസ്ത്ര സീമാബലും സ്റ്റീൽപ്പാന്റ് സ്പോർട്സ് ബോർഡും ഏറ്റുമുട്ടും വൈകീട്ട് നാലിന് ആശ്രാമം ന്യൂഹോക്കി സ്റ്റേഡിയത്തിലാണ് കിരീട പോരാട്ടം ടൂർണമെന്റിലെ ലൂസേഴ്സ് ഫൈനൽ നാളെ ഉച്ചകഴിഞ്ഞായിരിക്കും

ആദ്യ മത്സരം തോറ്റ കേരള്ത്തിന് ഇന്നത്തെ കളി നിർണാ യകമാണ് ബീച്ച് ഗെയിംസിന്റെ സംസ്ഥാനതല വോളിബോൾ മത്സരങ്ങൾ ഇന്ന് കണ്ണൂരിൽ തുടങ്ങും

കമ്പവലി മത്സരം കോഴിക്കോട്ടും കബഡി ആല പ്പുഴയിലും ഫുട്ബോൾ മത്സരം തിരുവനന്തപുരത്തുമാണ് സംഘടിപ്പിക്കു ന്നത് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സോണൽ ഷൂട്ടിംഗ്ബോൾ ചാമ്പ്യൻഷി പ്പിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ മഹാരാഷ്ട്ര ഒഡീഷ ടീമുകൾ ജേതാ ക്കളായി മധ്യപ്രദേശ് നാഗാലാന്റ് ടീമുകൾക്കാണ് രണ്ടാംസ്ഥാനം

സി ട്രാവു എഫ്

വൈകീട്ട് ഏഴിന് കോഴി ക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം

ആന്ധ്ര യിലെ രാജംപേട്ടയിൽ ബംഗാളിനോടായിരുന്നു കേരളത്തിന്റെ തോൽവി

കഴിഞ്ഞ വർഷത്തെ മികച്ച സ്ഥാപനങ്ങൾക്കും പഞ്ചായത്തുകൾക്കും സമ്മാനദാനവും മന്ത്രി നടത്തും മറ്റൊരു ചടങ്ങിൽ മഹിളാ കിസാൻ സ്വശാക്തീകരണ പരി യോജന സംസ്ഥാനതല സംഗമവും പുരസ്കാര വിതരണവും കോട്ടമൈ താനത്ത് മന്ത്രി നടത്തും രദ്ദേഷ്ടങ പാലക്കാട് ജില്ലാ എക്സൈസ് ടവർ രാവിലെ മന്ത്രി ടി

മന്ത്രിമാരായ എ കെ ബാലനും കെ കൃഷ്ണൻകുട്ടിയും ചടങ്ങിൽ പങ്കെടുക്കും

തൂങ്ങിമരിച്ച നിലയിൽ വിദ്യാർത്ഥിനിയെ കണ്ടെത്തി യിട്ടും സ്കൂൾ അധികൃതർ സംഭവം മറച്ചുവെയ്ക്കാൻ ശ്രമിക്കുകയായിരു ന്നുവെന്നാണ് പൊലീസിന്റെ കണ്ടെത്തൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യ ങ്ങളെക്കുറിച്ച് പൊലീസ് അന്വേഷണം ആരംഭിച്ചു രദ്ദേഷ്ടങ ഇടുക്കി അടിമാലിയിൽ നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്കാഡ് രണ്ടു കിലോ കഞ്ചാവുമായി ഒരാളെ അറസ്റ്റ് ചെയ്തു

ചില്ലറ വില്പനക്കാവശൃമായ പാക്കിംഗ് കവറുകളും രണ്ടായിരം രൂപയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു

ഡി

ഐ ബി ജെ പി സംഘർഷ ത്തിൽ ഇടപെട്ട നാല് പൊലീസുകാർക്ക് കല്ലേറിൽ പരിക്കേറ്റു

ജെ

പേരാമ്പ്ര മുതുകാട് ഗൃഹസന്ദർശനം നടത്തി മന്ത്രി ടി പി രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും

പി രാമകൃഷ്ണനും എ കെ ശശീ ന്ദ്രനും ഇന്ന് വിവിധ ചടങ്ങുകളിൽ പങ്കെടുക്കും രാവിലെ ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവതി ആഘോഷത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ സംബന്ധിക്കും മന്ത്രി ടി പി രാമ കൃഷ്ണൻ വൈകീട്ട് കുറുവങ്ങാട് സെൻട്രൽ യു പി സ്കൂൾ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ തല കായിക മത്സരവും രോഗനിർണയ ക്യാമ്പും ഇന്ന് മട്ടന്നൂരിൽ സംഘടിപ്പിക്കും